തുടക്കമായി പാലക്കാട് ജില്ലയ്ക്ക് മുന്നേറ്റം

വൈകിട്ട് തുറക്കും

ശബരിമല ദർശനത്തിന് എത്തുന്ന യുവതികളെ തടയാൻ ന് പമ്പയിൽ ചെക്ക് പ്രോസ്റ്റ് ഉണ്ടാവില്ലെന്ന് ഡിജിപി

സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നാളെ നിർവ്വഹിക്കും

എസ് ആർ

പരിഹരിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് കൂടുതൽ ധനസഹായം നൽകണമെന്ന് മന്ത്രി ഏ

ശശീന്ദ്രൻ

സീനിയർ പെൺകുട്ടികളുടെ ലോംഗ് ജംപിൽ ദേശീയ റിക്കോർഡ് ഭേദിച്ച ആൻസി സോജനും സ്വർണ്ണം കരസ്ഥമാക്കി കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ

ക്ഷേത്രത്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്ര മേൽശാന്തി വി

ശബരിമലയിലെ പുതിയ മേൽശാന്തിയായി എ

സുധീർ നമ്പൂതിരി യെയും മാളികപ്പുറം മേൽശാന്തിയായി എം

പരമേശ്വരൻ നമ്പൂതിരി യെയും അവരോധിക്കുന്ന ചടങ്ങും നടക്കും

ശബരിമല ലോക്നാഥ് ബെഹ്റ ശബരിമല ദർശനത്തിന് എത്തുന്ന യുവതികളെ തടയാൻ പമ്പയിൽ ചെക്ക് പോസ്റ്റ് ഉണ്ടാവില്ലെന്ന് ഡിജിപി ലോക്നാഥ് ബെഹ്റ കൊച്ചിയിൽ പറഞ്ഞു

ശബരിമല വിധിയിൽ അഡ്വക്കറ്റ് ജനറലിന്റെ ഉപദേശം തേടുമെന്നും പോലീസ് മേധാവി മാധ്യമങ്ങളോട് പറഞ്ഞു

ബി നൂഹ് ശബരിമല തീർഥാടനത്തോടനുബന്ധിച്ച് നിലയ്ക്കലിൽ ഒരുക്കിയിട്ടുള്ള സൌകര്യങ്ങൾ ജില്ലാ കളക്ടർ പി ബി നൂഹ് വ്വിലയിരുത്തി ഗോശാലയ്ക്ക് സമീപം പുതിയതായി ഒരുക്കിയ വാഹ്ട്രി പാർക്കിംഗ് സൌകര്യവും കളക്ടർ പരിശോധിച്ചു ശബരിമല ഇൻട്രോ ശബരിമലയിലേക്കുള്ള പരമ്പരാഗത വനപാതയായ സത്രം പുല്പുമേട് വഴിയിലൂടെ തീർത്ഥാടനം നടത്തുന്നവർക്കായി പോലീസും വനപാലകരും വിവിധ വകുപ്പുകളും ചേർന്ന് അടിസ്ഥാനസൌകര്യങ്ങൾ ഒരുക്കി

നൂറോളം ബിഷപ്പുമാർ പങ്കെടുക്കുന്ന ദിവൃബലിയിൽ സീറോ മലബാർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി മുഖ്യകാർമികത്വം വഹിക്കും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്കാ ബാവ വചനസന്ദേശം നൽകും

നിലവിൽ ഗവൺമെന്റ് പ്രത്യേക താത്പര്യമെടുത്ത് ഇപ്പോൾ ധനസഹായം നൽകുന്നുണ്ട് ശമ്പളപ്രതിസന്ധിക്ക് കാരണം കൊടുക്കാൻ പണമില്ലാത്താണെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു

വടവാതൂർ കുന്നപ്പള്ളിയിൽ അശ്വിൻ കെ ക്രസാദിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ ലഭിച്ചത് മീനടം സ്വദേശി ഷിബിൻ ജേക്കബ് ചിങ്ങവനം സ്വദേശി കെ

അലൻ എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു പുതുപ്പള്ളി ഐ എച്ച് ആർ ഡി കോളജിലെ വിദ്യാർഥികളാണ് അപകടത്തിൽപെട്ടത് കൊലപാതകം ചെങ്ങന്നൂർ വെൺമണിയിൽ വൃദ്ധ ദ്രമ്പ്തിമാരെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ ബംഗ്ലാദേശ്ശ് സിദേശികളെ റിമാന്റ് ചെയ്തു പ്രതികളായ ലബലു ജുവൽ എന്നീപ്പരെയാണ് ചെങ്ങന്നൂർ മജിസ്ട്രേറ്റ് കോടതി റിമാന്റ് ചെയ്തത് കൊല്ലപ്പെട്ട ചെറിയാനും ഭാര്യ ലില്ലിയും താമസിച്ചിരുന്ന ആഞ്ഞില്പിമൂട്ടിൽ വീട്ടിൽ പ്രതികളെ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി ലഹരി ഉപയോഗം സ്കൂൾ പരിസരത്തും മറ്റുമുള്ള വിദ്യാർഥികളുടെ ലഹരി ഉപയോഗം തടയാൻ കർശന നടപടി സ്വീകരിക്കാൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് നിർദ്ദേശം വിഷയം ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ പോലീസ് മേധാവിയുടെയും പബ്ലിക്ക് പ്രോസിക്യൂട്ടറുടെയും യോഗം വിളിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡണ്ട് കെ വി സുമേഷ് പറഞ്ഞു കുട്ടികളിൽ ആത്മഹത്യയും മാനസിക സമ്മർദ്ദവും വർധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് നടപടി

പ്ലാസ്റ്റിക് ശേഖരിച്ച് നഗരസഭയിലെത്തിക്കുന്നവർക്ക് സൌജന്യ ഉച്ചയൂണ് നൽകുന്നതാണ് പ ദ്ധതി ജില്ലാ കളക്ടർ ജാഫർ മാലിക്കിൽ നിന്ന് ആദ്യ ഭക്ഷണ പൊതി ഏറ്റുവാങ്ങുന്നതോടെ പദ്ധതിക്ക് തുടക്കമാവും

തൊഴിലാളികളുടെ ക്ഷാമത്തിനൊപ്പം ചിലവ് വർദ്ധിക്കുന്നതും കർഷകർക്ക് വിനയായിട്ടുണ്ട് ജലോത്സവം ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ആദ്യ സീസണിലെ സെക്കൻഡ് ലാസ്റ്റ് മത്സരങ്ങൾ ഇന്ന് കൊല്ലം മൺട്രോത്തുരുത്തിലെ കല്പടയാറ്റിൽ നടക്കും ഉച്ചയ്ക്കുശേഷം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും

ഇരുട്ടുകുത്തി വെപ്പ് വിഭാഗങ്ങളിലും മത്സരങ്ങൾ നടക്കും

കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്